എയർ ഇന്ത്യക്ക് പുറമെ ഇൻഡിഗോയും ഗോ എയറും പ്രവാസികളെ തിരികെ കൊണ്ടു വരും

വാർത്തകൾ വിശദമായി വൈറസിനെതിരായ യുദ്ധവും കിഴക്കൻ കൊറോണാ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈനയുമായുള്ള സംഘർഷവും ഇന്ത്യ ജയിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ പറഞ്ഞു വെല്ലുവിളികൾ ഈ രാജ്യം അതിജീവിക്കുമെന്നും വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം അറിയിച്ചു ലഡാക്ക് പ്രശ്നത്തിൽ ഗവൺമെന്റിനെതിരെ രാഹുൽഗാന്ധി നടത്തുന്ന പരാമർശങ്ങളെ അമിത്ഷാ വിമർശിച്ചു

ചികിത്സയിൽ കഴിയുന്നവരേക്കാൾ ഒരു ലക്ഷത്തിലധികം പേർ രോഗമുക്തി നേടിക്കഴിഞ്ഞു

ഇന്നു മുതൽ പ്രതിദിനം രണ്ടായിരം യാത്രക്കാരുടെ ടെസ്റ്റിങ് നടത്താൻ സൌകര്യമാണ് വിമാനത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്നത്

അബൂദാബി ഷാർജ ദോഹ മസ്കത്ത് സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് വിമാനങ്ങൾ പ്രവാസികളുമായി എത്തുന്നത്

തുടർച്ചയായി പത്താം ദിവസമാണ് നൂറിലേറെ പേർക്ക് കോവിഡ് ബാധിക്കുന്നത്

മലപ്പുറം ജില്ലയിലെ അഞ്ച് സ്വകാര്യ ആശുപത്രി ജീവനക്കാരും കോട്ടയം ജില്ലയിലെ നാലു പേരും തിരുവനന്തപുരം ആലപ്പുഴ തൃശൂർ കണ്ണൂർ പാലക്കാട് ജില്ലകളിലെ ഓരോരുത്തരും ഇതിൽപെടുന്നു

രുമ സംസ്ഥാനത്ത് ഇന്നലെ ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച കണ്ണൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി കെ ഒ ശശിധരൻ

ചാലക്കുടി നഗരസഭാ കൌൺസിലർക്ക് നേരത്തെ രോഗം സ്ഥിരീകരിച്ച ജീവനക്കാരനിൽ നിന്നാണ് സമ്പർക്കം മൂലം രോഗപ്പകർച്ച ഉണ്ടായത്

രേര വയനാട്ടിൽ വിദേശത്ത് നിന്നെത്തിയ മൂന്ന് പേർക്കും മുംബൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നുമെത്തിയ രണ്ട് പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്

നെടുങ്കണ്ടം മാവടി ഉടുമ്പൻചോല മയിലാടുംപാറ തൊടുപുഴ കോടിക്കുളം എന്നിവിടങ്ങളിലാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതിൽ മൂന്നുപേർ വിദേശത്തു നിന്നെത്തിയവരാണ്

ഈ കുട്ടിയുടെ വലിയച്ഛന് രോഗം സ്ഥിരീകരിച്ചിരുന്നു

പതിമൂന്നര ലക്ഷത്തോളം പേർക്ക് രോഗം ബാധിച്ചു

സ്വകാര്യ വിമാന കമ്പനികളായ ഇൻഡിഗോ ഗോ എയർ എന്നിവയും നാലാംഘട്ടത്തിൽ പ്രവാസികളെ തിരികെയത്തിക്കുന്നതിൽ രംഗത്തുണ്ടാകും

ദേശ അതേസമയം വന്ദേഭാരത് മിഷന്റെ നാലാംഘട്ടത്തിൽ യു

ഇയിൽ നിന്ന് തിരികെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരിട്ട് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയും എയർ ഇന്ത്യയുടെ വെബ്സൈറ്റുകളിൽ ഇന്നലെ വൈകീട്ട് ടിക്കറ്റുകളുടെ നേരിട്ടുള്ള വിൽപന ആരംഭിച്ചു

കോവിഡ് സ്പെഷ്യൽ മിഷന്റെ ഭാഗമായി മാലി മൌറീഷ്യസ് മഡ്ഗാസ്കർ ഷെയ്സൽസ് കോമറോസ് ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കപ്പൽ ഭക്ഷ്യ വസ്തുക്കളും ഔഷധങ്ങളും എത്തിക്കുന്ന ദൌത്യമാണ് ഏറ്റെടുത്തിരുന്നത്

ഇതിനു പുറമെ മിഷൻ സാഗർ പദ്ധതി പ്രകാരം മെഡിക്കൽ ടീമുകളുടെ സഹായവും ഈ രാജ്യങ്ങൾക്ക് നൽകി രുര ജമ്മു കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ മൂന്ന് ഭീകരരെ ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേന വധിച്ചു പ്രദേശത്ത് ഭീകരർ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് സുരക്ഷാ സേന തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത് ഭീകരർ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിവെയ്ക്കുകയായിരുന്നു തെരച്ചിൽ പ്രവർത്തനങ്ങൾ തുടരുകയാണെന്ന് പൊലീസ് ട്വിറ്ററിൽ അറിയിച്ചു

രുദ തുടർച്ചയായി ഇന്ധനവില വർദ്ധിപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടിക്കെതിരെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി ധർണ നടത്തും പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിലാണ് ധർണ പ്രസിദ്ധമായ കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വൈശാഖ മഹോത്സവം ഇന്ന് സമാപിക്കും

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഭക്തജനങ്ങൾക്ക് പ്രവേശനം നൽകാതെ ചടങ്ങുകൾ മാത്രമായാണ് ഇത്തവണ വൈശാഖോത്സവം നടത്തിയത് വിളക്കുകളെല്ലാം അണച്ച് ആചാര്യൻമാർ മടങ്ങുന്നതോടെ അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനം അവസാനിക്കും രുര മറയൂർ പഞ്ചായത്തിലെ പെരിയകുടി കാന്തല്ലൂർ പഞ്ചായത്തിലെ തീർഥമലക്കുടി വട്ടവട പഞ്ചായത്തിലെ സ്വാമിയാർ കുടി എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച ലൈബ്രറികളുടെ ഉദ്ഘാടനം നാളെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എസ് മണി കുമാർ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കും